സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ചൈതനൃം നിറ ക്കാൻ ആഘോഷങ്ങൾക്ക് കഴിയട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ശശീന്ദ്രൻ നിർദേശം നൽകി

കുടുംബാംഗങ്ങൾ ഒത്തു ചേർന്ന് നാടൻ കളികളിലേർപെട്ടും വിഭസമൃദ്ധമായ സദ്യവ ട്ടങ്ങളൊരുക്കിയും ആഘോഷത്തിമർപ്പിലാണ് മലയാളികൾ സ്നേഹവും സന്തോഷവും ഐക്യവും ഊട്ടിയുറപ്പിച്ച് മല യാളനാടിന്റെ ഈ മഹോത്സവം അവിസ്മരണ്ടീയമാക്കുന്ന കാഴ്ചയാണ് എവിടെയും

സമൃ ദ്ധമായ ഇന്നലെകളെക്കുറിച്ച ആലോചനകളിലൂടെ പ്രകൃതി യിലേക്ക് മടങ്ങാനുള്ള പ്രേരണ കൂടി ഓണം മലയാളിക്ക് നൽകുന്നു

ഇളംതലമുറ കൈകൊട്ടിക്കളി ഊഞ്ഞാലാട്ടം ഓണത്തല്ല് പുലിക്കളി തലപ്പന്തുകളി വടംവലി തുടങ്ങിയ ഓണക്കളിക ളിലേർപ്പെട്ടപ്പോൾ മുതിർന്നവർ വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കുന്നതിൽ വ്യാപൃതരായി സദ്യക്കുശേഷം കുടുംബ സന്ദർശനം രോഗീ സന്ദർശനം തുടങ്ങിയവയും നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓണാശംസ നേർന്നു സന്തോ ഷത്തിന്റെയും ഐശ്വരൃത്തിന്റെയും സമൃദ്ധിയുടെയും ചൈതന്യം നിറക്കാൻ ആഘോഷങ്ങൾക്ക് കഴിയട്ടെ എന്ന് മോദി മലയാളത്തിൽ ട്വീറ്റ് ചെയ്തു ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ഓണാശംസ നേർന്നു ശബരിമല സന്നിധാനത്ത് ഇന്ന് തിരുവോണസദ്യ ഒരുക്കി ഉച്ചപ്പൂജക്കുശേഷം തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനർ വിള ക്കിനു മുന്നിൽ ഇലയിട്ട് ആദ്യം ഭഗവാന് സദ്യവിളമ്പി തുടർന്ന് ദർശനത്തിനെത്തിയവർക്ക് ദേവസ്വം ഹാളിൽ വിഭ വസമൃദ്ധമായ സദ്യ വിളമ്പി ദേശീയ മൃഗരോഗ നിയന്ത്രണ പദ്ധതിക്ക് തുടക്കമായി ബ്രൂസല്ലോസിസ് കുളമ്പുരോഗം എന്നിവയിൽ നിന്ന് കന്നു കാലികളെ രക്ഷിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി നട പ്പാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദ്യി ഉത്തർപ്രദേശിലെ മധുരയിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി കിസാൻ മൻധൻ പദ്ധതി നാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കും ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ലഘുവ്യാ പാരി മൻധൻ പദ്ധതിയും സ്വരോസ്ഗാർ പെൻഷൻ പദ്ധ തിയും മോദി ഉദ്ഘാടനം ചെയ്യും കർഷകർക്ക് സാമൂഹൃസുരക്ഷ ഏർപെടുത്തുന്നതിന് പ്രധാനമന്ത്രി കിസാൻ മൻധൻ പദ്ധതിയിൽ പ്രതിമാസ പെൻഷൻ നൽകും

ഝാർഖണ്ഡ് നിയമസഭയുടെ പുതിയ മന്ദിരവും പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും പാക്കിസ്ഥാൻ ഭീകരവാദത്തിന്റെ പ്രഭവകേന്ദ്രമാണെന്ന് ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കൌൺസിലിൽ ഇന്ത്യ വ്യക്ത മാക്കി

ഭീകരർക്കും അവർക്ക് സംരക്ഷണം നൽകു ന്നവർക്കുമെതിരെ പോരാടാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നി ക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു നയതന്ത്രത്തിന്റെ ബദൽ എന്ന നിലയിൽ പാക്കിസ്ഥാൻ അതിർത്തി കടന്ന് ഭീകരപ്ര വർത്തനം നടത്തുകയാണെന്നും അവർ പറഞ്ഞു പാക്കിസ്ഥാൻ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളൊന്നും വിജയിക്കാൻ പോകുന്നില്ലെന്നും രാജ്യത്തിന്റെ ഐക്യം കാത്ത് സൂക്ഷിക്കണമെന്ന കാര്യത്തിൽ ഇന്ത്യൻ ജനത ഒറ്റ ക്കെട്ടാണെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം മിഷൻ പ്രഥമ സെക്രട്ടറി വിമർശ് ആര്യനും വ്യക്തമാക്കി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാതൽ സഹിഷ്ണുതയും നാനാത്ചത്തിൽ ഏകത്വവുമാണെന്നും അദ്ദേഹം പറഞ്ഞു മോട്ടോർ വാഹന ഭേദഗതി ബിൽ അനുസരിച്ച് പുതുക്കിയ പിഴ കുറക്കാൻ കഴിയുമോ എന്ന കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി എ

ശശീന്ദ്രൻ ഗതാഗത സെക്രട്ടറിക്ക് നിർദേശം നൽകി തിങ്കളാഴ്ചക്കകം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് മന്ത്രി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ നിയമം നടപ്പാക്കിയതിന്റെ രീതിയും റിപ്പോർട്ടിൽ വിശദമാക്കാൻ ആവ ശൃപ്പെട്ടിട്ടുണ്ട്

ഗുജറാത്ത് ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങൾ പിഴ ഈടാക്കുന്ന കാര്യത്തിൽ ഇളവ് നൽകിയ പശ്ചാത്തലത്തിലാണ് കേരളവും സമാനമായ നടപടിയിലേക്ക് നീങ്ങുന്നത് ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ഉയർന്ന പിഴത്തുക ഇൌടാക്കുന്നത് കേരളത്തിൽ വൻ പ്രതിഷേധത്തിന് കാരണമായിരുന്നു പിഴത്തുക കുറയ്ക്കണമെന്ന് എൽഡിഎഫും യുഡിഎഫും ഒരുപോലെ ആവശ്യമുന്നയിച്ചിരുന്നു സംസ്ഥാനത്ത് ഇന്ന് റോഡപകടങ്ങളിൽ നാല് പേർ മരിച്ചു കോഴിക്കോട് പന്നിയങ്കരയിൽ പുലർച്ചെ പാൽ കയറ്റി വന്ന പിക്ക് അപ്പ് വാൻ കാറിലിടിച്ച് രണ്ട് പേർ മരിച്ചു രാമനാട്ടുകര വൈദ്യരങ്ങാടി സ്വദേശി മുനവറും ബേപ്പൂർ സ്വദേശി ഷാഹിദ് ഖാനുമാണ് മരിച്ചത് പരുക്കേറ്റ രണ്ട് പേരെ കോഴിക്കോട് മെഡിക്കൽ കോളെജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കാ ണിപ്പയ്യൂരിൽ കെ എസ്

ബസും ബൈക്കും കൂട്ടിയി ടിച്ച് ബൈക്ക് യാത്രക്കാരായ രണ്ട് യുവാക്കൾ മരിച്ചു ചൂണ്ടൽ സ്വദേശികളായ സകേഷ് അഭിജിത്ത് എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം ആന്ധ്രയിൽ വൈ

ജഗൻ മോഹൻ റെഡ്സി ഗവൺമെന്റിന് എതിരായ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് തടയാൻ മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും മകൻ നാരാ ലോകേഷ് നായിഡുവും അടക്കം തെലുങ്കുദേശം പാർട്ടിയുടെ നിരവധി നേതാക്കളെ കരുതൽ തടങ്കലിലാക്കി

ആർ കോൺഗ്രസ് പാർട്ടി തങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ടിഡിപി ഇന്ന് പ്രക്ഷോഭ പരിപാടികൾ തുടങ്ങാനിരിക്കെയാണ് നേതാക്കളെ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചത് ഇത് ജനാധിപത്യത്തിലെ ഇരുണ്ട ദിനമാണെന്ന് നായിഡു പറഞ്ഞു

ഉന്നാവോ പീഡനക്കേസിലെ വിചാരണ നടപടികൾ ഡൽഹി എയിംസിലെ താത്കാലിക കോടതിയിൽ തുടങ്ങി എയിംസിലെ ട്രോമകെയറിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ രഹസ്യമൊഴി പ്രത്യേക ജഡ്ജി ധർമേശ് ശർമ രേഖപ്പെടുത്തും എയിംസിൽ വെച്ച് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഡൽഹി ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു വിചാരണ നടക്കുന്ന സെമിനാർ ഹാളിന് സമീപമുള്ള എല്ലാ കൃാമറകളും പ്രവർത്തനരഹിതമാക്കാൻ കോടതി നിർദേശം നൽകിയിട്ടുണ്ട് പൊതുജനങ്ങൾക്കും മാധ്യമ ങ്ങൾക്കും വിചാരണാഹാളിലേക്ക് പ്രവേശനം നിരോധിച്ചി ട്ടുണ്ട് ജമ്മുകാശ്മീരിലെ സോപോരിൽ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന ലഷ്കർ നേതാവിനെ വധിച്ചു മുതിർന്ന ലഷ്കർ നേതാവ് ആസിഫ് ആണ് കൊല്ലപ്പെട്ടത്

പരീക്ഷ മലയാളത്തിൽ നടത്താത്ത പിഎസ് സി പിരിച്ചുവിടണമെന്ന് സംവിധായകൻ അടൂർ ആവശ്യപ്പെട്ടു

ഐക്യമലയാള പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ തിരു വനന്തപുരത്ത് പി

സി ആസ്ഥാനത്തിനു മുമ്പിൽ നട ക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഉൾപെടെ പരീക്ഷകളിലെ ചോദ്യങ്ങൾ മല യാളത്തിലും വേണമെന്ന് ആവശ്യപ്പെട്ടാണ് പി

ഓഫീസിനു മുന്നിൽ അനിശ്ചിതകാല നിരാഹാരസമരം നട ക്കുന്നത്

ജനങ്ങളുടെ താത്പര്യമാണ് സംരക്ഷിക്കുന്നതെങ്കിൽ ജനങ്ങളുടെ ഭാഷയിലാണ് ആശയവിനിമയം സാധ്യമാക്കേണ്ടതെന്ന് എം

വാസുദേവൻ നായർ പറഞ്ഞു

എസ് ഉൾപ്പടെയുള്ള പി

സി പരീക്ഷകൾ മലയാളത്തിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് സാംസ് കാരിക നായകർ കോഴിക്കോട്ട് നടത്തിയ ഉപവാസത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കോടതി രജിസ്റ്ററിൽ ഹരജി ഫയലിൽ സ്വീകരിച്ചു ഫ്ളാറ്റ് പൊളിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഉത്തരവിൽ ഗുരുതരമായ പിഴവുകളുണ്ടെന്നും അത് തിരുത്തണമെന്നും ഹരജിയിൽ ആവശ്യപ്പെടുന്നു അതിനിടെ മരടിലെ ഫ്ളാറ്റ് സമുച്ചയം സംരക്ഷിക്കാൻ നടപടി വേണമെന്നാവശൃപ്പെട്ട് ഉടമകൾ നിരാഹാര സമരം ആരംഭിച്ചു നഗരസഭാ കാര്യാലയത്തിന് മുന്നിലാണ് അഞ്ച് ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന ആയിർത്തിലേറെ പേർ നിരാഹാര സമരം നടത്തുന്നത് തങ്ങൾക്ക് അനുകൂലമായ വിധി ഉണ്ടാകുന്നത് വരെ പ്രതിഷേധം തുടരുമെന്ന നിലപാടിലാണ് ഫ്ളാറ്റ് ഉടമകൾ തിരുവനന്തപുരത്ത് ഇന്ത്യ എ ടീമും ദക്ഷിണാഫ്രിക്ക എ ടീമും തമ്മിലുള്ള ആദ്യ ചതുർദിന ടെസ്റ്റ് ക്രിക്കറ്റിന്റെ മൂന്നാം ദിനമായ ഇന്ന് മഴയെ തുടർന്ന് മത്സരം വൈകുന്നു

മലബാറിന്റെ ജലോത്സവമായ പൊന്നാനി ബിയ്യം കായൽ വള്ളംകളി മത്സരം നാളെ വള്ളംകളിയുടെയും പൂർത്തി യാക്കിയ പവലിയൻ നിർമാണ പ്രവൃത്തികളുടെയും ഉദ്ഘാ ടനം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിക്കും

വയനാട് മുത്തങ്ങ എക്സൈസ് ചെക്പോസ്റ്റിൽ ലഹരി ഗുളികകളുമായി കോഴിക്കോട് സ്വദേശികൾ പിടിയിലായി മൈസൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന കെ എസ്

സി ബസ്സിലെ യാത്രക്കാരായ പി

ജുനൈദ് എന്നിവരാണ് പിടിയിലായത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ ചിക്കൻ സ്റ്റാളിലെ തർക്കത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ചു